പി മാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാധം ചെയ്തു

മുംബൈയിൽ കനത്ത മഴ തുടരുന്നു

വിവിധ ജില്ലകളിലും വെള്ളപ്പൊക്കം

ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലും സമീപ ജില്ലകളിലും ഇന്നലെ അർദ്ധരാത്രി മുതലാണ് ഗവൺമെന്റ് നിരോധനാജ്ഞ നിലവിൽ വന്നത് ഉത്തരവ് പ്രകാരം ശ്രീനഗറിലെ എല്ലാ പൊതു പരിപാടികളും റാലികളും വിലക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കും എന്നാൽ അത്യാവശ്യ സർവ്വീസുകൾ വിലക്കിയിട്ടില്ല ജമ്മുകിശ്തവാർ റസായി ദോഡ ഉദ്ദംപൂർ എന്നീ ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി കിശ്തവാർ രജൌരി ജില്ലകളിലും റമ്പാൻ ജില്ലയിലെ ബഹിഹാൽ പ്രദേശത്തും നൈറ്റ് പട്രോളിംഗ് ഏർപ്പെടുത്തി ജമ്മു സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചു കാശ്മീർ താഴ്വരയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവരുടെ ഹോസ്റ്റലുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഒഴിഞ്ഞുപോകാൻ നിർദ്ദേശം നൽകി മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളും വിലക്കിയിട്ടുണ്ട് ആശയവിനിമയത്തിന് ക്രമസമാധാന പാലകർക്കും ജില്ലാ മജിസ്ട്രേറ്റിനും സാറ്റലൈറ്റ് ഫോണുകൾ വിത രണം ചെയ്തു

ചീഫ് സെക്രട്ടറിയും ഡിജിപിയും യോഗത്തിൽ പങ്കെടുത്തു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ ഡുൽഹിയിൽ ഉന്നത ഉദ്യോ ഗസ്ഥരുമായി കാശ്മീരിലെ സ്ഥിതിഗതിക്കൽ വിലയിരുത്തി ഒരു മണി ക്കൂർ നീണ്ടു നിന്ന അവലോകന ചർച്ചയിൽ ദേശീയ സുരക്ഷാ ഉപദേ ഷ്ടാവ് അജിത് ഡോവൽ കേന്ദ്രിആഭ്യന്തര സെക്രട്ടറി രാജീവ് ഗൌബെ മറ്റ് മുതിർന്ന ഉദ്യോശ്സ്മർ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നൃത്ത്രേന്ദ്രമോദി അടിയന്തര കേന്ദ്ര മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്

ഏഴായിരം രൂപയ്ക്കും താഴെയാണ് നിലവിലെ ടിക്കറ്റ് നിരക്ക്

യാസിൻ മാലിക്കിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടു വരുന്ന വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് തീവ്രവാദികൾക്ക് ധനസഹായം നൽകിയെന്ന കേസിലാണ് യാസിൻ മാലിക് ജയിലിലായത് കഴിഞ്ഞ ദിവസമാണ് യാസിൻ മാലിക്കിന്റെ ആരോഗ്യനില വഷളാണെന്നും അടിയന്തര ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ട് യാസിൻമാലിക്കിന്റെ ഭാര്യ രംഗത്തെത്തിയത്

ജെ

മാർക്കായി സംഘടിപ്പിച്ച ദിദിന പരിശീലന പരിപാടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ

ദേശവും ദേശീയതയുമാണ് പ്രഥമമായി പരിഗണിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവരുടേയും ക്ഷേമത്തിനായിരിക്കണം രാഷ്ട്രീയത്തിൽ പ്ര പ്രവർത്തിക്കേണ്ടതെന്നും പ്രധാനമന്ത്രി പിശദീകരിച്ചു എല്ലാവർക്കും പ്രിയപ്പെട്ട തരത്തിലൂാക്ണം സാമാജികരുടെ സ്വഭാവമെന്ന് പ്രധാനമന്ത്രിയെ ഉദ്ധരിച്ചുകൊണ്ട് പാർലമെന്ററികാര്യമന്ത്രി പ്രഹ്നാദ് ജോഷി പറഞ്ഞു

റായ് ബറേലി അപകടക്കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ ഉത്തർപ്രദേശിലെ വിവിധയിടങ്ങളിൽ റെയ്ഡ് നടത്തി

ഉന്നാവോ കേസിൽ അറസ്റ്റിലായതു മുതൽ ഇയാളെ സീതാപൂർ ജയിലിലാണ് പാർപ്പിച്ചിരുന്നത് തനിക്കെതിരായ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ജയിൽ മാറ്റുന്നതിനിടെ സെംഗാർ മാധ്യമങ്ങളോട് പറഞ്ഞു ഉന്നാവോ പെൺകുട്ടിക്ക് അപകടം ഉണ്ടായതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നാണ് സി ബി

അപകടത്തിൽ പരിക്കേറ്റ് ലക്നൌ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്

നഗരത്തിലും സമീപ പ്രദേശങ്ങ ളിലും രണ്ടു ദിവസമായി തോരാതെ പെയ്യുന്ന മഴയിൽ പല പ്രദേശ ങ്ങളും വെള്ളത്തിലായി താനെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ നിരവധി വീടുകളും വെള്ളത്തിനടിയിലായി രക്ഷാപ്രവർത്തന ങ്ങൾ ഊർജിതമായി തുടരുന്നു കനത്ത മഴയെ തുടർന്ന് മുംബൈ താനേ പൽഘർ റായ്ഗഡേ മേഖലകളിൽ സ്കൂളു കൾക്ക് ഇന്ന് അവധി നൽകി തീരപ്രദേശങ്ങളും കനത്ത ജാഗ്രത യിലാണ് മഴയെ തുടർന്ന് ഛത്രപതി ശിവജി ടെർമിനലിൽ നിന്നുള്ള പ്രാദേശിക ട്രെയിനുകൾ റദ്ദാക്കി മണ്ണിടിച്ചിലിനെ തുടർന്ന് തടസ്സപ്പെട്ട കൊങ്കൺ പാതയിലൂടെയുള്ള് ഗതാഗതം പുനഃസ്ഥാപി ക്കാൻ ശ്രമങ്ങൾ നടത്തിവരിക്യാണ് കേരളത്തിൽ നിന്ന് മുംബൈയിലേക്കുള്ള മൂന്ന് ട്ടെയിനുകൾ റദ്ദാക്കി

എസ് റ്റി ജയന്തി ജനത നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരം വഴിയുള്ള മുംബൈ സി എസ്

ഇന്നലെ നേത്രാവതി എക്സ്പ്രസ്സ് ഷൊർണ്ണൂരിലും ഗരീബ്രഥ് കണ്ണൂരിലും യാത്ര അവസാനിപ്പിച്ചിരുന്നു

യാദ്ഗിർ ഐയ്ച്ചൂർ വിജയപൂര എന്നിപിടങ്ങളും ബെൽഗാവി ജില്ലയിലെ അത്താനി ബഗൽകോട്ട് ബേലാഗവി എന്നീ പ്രദേശ ങ്ങളിലും മുഖ്യമന്ത്രി യെദിയൂരപ്പ വ്യോമനിരീക്ഷണം നടത്തും പ്രളയസാഹചര്യം കേന്ദ്രഗവൺമെന്റിനെ അറിയിക്കുമെന്ന് ശ്രീ

കൃഷ്ണാനദിയുടെ വൃഷ്ടിപ്രദേശങ്ങ ളിൽ അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണവിഭാഗം അറിയിച്ചു നാളെ വരെ ബലാഗ വി ബഗൽകോട്ട് കലബുർഗി ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധൃതയുണ്ടെന്ന് കർണ്ണാടക ദുരന്ത നിവാരണ കേന്ദ്രം അറിയി ച്ചു

അഞ്ച് പേർക്ക് പരിക്കേറ്റു ഇന്നലെ വൈകിട്ട് കോട്ടപ്പളളിക്ക് സമീപം മിഡ്ജിൽ മണ്ടലിലാണ് അപകടം നടന്നതെന്ന് പൊലീസ് പറഞ്ഞു യാത്രക്കാരെ നിറച്ച് വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ എതിർ ദിശയിൽ നിന്നെത്തിയ ട്രക്ക് ഇടിക്കുകയായിരുന്നു

അപകടത്തിൽ മുഖ്യമന്ത്രി കെ

പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി

തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി അധികാരമേറ്റശേഷമാണ് ഹസീനയുടെ സന്ദർശനം ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി എ

അബ്ദുൾ മോമൻ ഇന്നലെ ധാക്കയിലാണ് ഇക്കാരൃം അറിയിച്ചത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേ ഊഷ്മളതയോടെ ഇസ്രായേലിന് സ്നേഹ സന്ദേശം അറിയിച്ചു

ഡെകർത്ത് ലൂയിസ് നിയമപ്രകാരമാണ് ഇന്ത്യയുടെ ജയം

രോഹിത് ശർമ്മയുടെ അർധസെഞ്ചുറിയുടെ മികവിലാണ് ഇന്ത്യ മികച്ച സ്കോർ നേടിയത്

ബാങ്കോക്കിൽ ഇന്നലെ നടന്ന തായ്ലന്റ് ഓപ്പണിന്റെ പുരുഷ ഡബിൾസ് കിരീട നേടിയതോടെയാണ് സഖ്യം ബഹുമതിയ്ക്ക് അർഹരായത്